ചാർട്ടേഡ് ഫ്ളൈറ്റിലെ യാത്രക്കാർക്ക് കോവിഡ് പരിശോധന വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ

മിഥുന മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും ഭക്തർക്ക് പ്രവേശനമില്ല

സംസ്ഥാനത്ത് നാളെ കൂടി മഴ തുടരും വടക്കൻ കേരളത്തിൽ ഇന്ന് യെല്ലോ അലർട്ട്

ശൈലജ കേരളത്തിലേയ്ക്ക് മടങ്ങുന്ന പ്രവാസികളുടെ സുരക്ഷയെ കരുതിയാണ് ചാർട്ടേഡ് ഫ്ളൈറ്റിലെ യാത്രക്കാർക്ക് കോവിഡ് പരിശോധന വേണമെന്ന് സംസ്ഥാന സർക്കാർ അഭിപ്രായപ്പെട്ടതെന്ന് ആരോഗൃമന്ത്രി കെ

സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഉത്തരവ് അപ്രായോഗികവും പ്രവാസികൾക്ക് സാമ്പത്തികമായി ബാധ്യതയുണ്ടാക്കുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്രവ പരിശോധന സംസ്ഥാനത്ത് കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരുടെ സ്രവം ഇനി ആരോഗ്യവകുപ്പ് വീടുകളിലെത്തി ശേഖരിക്കും ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി

തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോകൂർ നഴ്സ് എന്നിവരുടെ സംഘം പ്രത്യേക ആംബുലൻസിലെത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്രവം ശേഖരിക്കും

അതിനാൽ ജാഗ്രത തുടരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ

വിദേശത്ത് നിന്നുള്ള പ്രവാസികളുമായി ് ഇ്ന്നു് ഒൻപത് വിമാനങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവിളത്തിൽ എത്തും

ഫാക്ട് ചെക്ക് പ്രധാൻമന്ത്രി ധൻലക്ഷ്മി യോജനയ്ക്ക് കീഴിൽ രാജ്യത്തെ വനിതകൾക്ക് വായ്പ നൽകുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ

ഇത്തരമൊരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടില്ലെന്നും പി

ലോക്ക്ഡൌൺ ഇളവ് ഇന്നത്തെ ലോക്ക് ഡൌണിൽ ഇളവ് അനുവദിച്ചെങ്കിലും സംസ്ഥാനത്തെ ആരാധാനാലയങ്ങളിൽ വിശ്വാസികളെത്തുന്നതിൽ കുറവ്

പരീക്ഷകളിൽ ് പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ് ചുമതല ഉള്ളവർക്കും ഇളവ് അനുവദിച്ചിരുന്നു

ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല ഭക്തരെ പ്രവേശിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും അന്യസംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് അനുവദിക്കേണ്ടെന്ന് പ്രവേശനം തീരുമാനിക്കുകയായിരുന്നു

അമ്പല പാറയിൽ കാട്ടാന പാലക്കാട് അമ്പലപാറയിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ മുഖ്യപ്രതികളായ അബ്ദുൽ കരീം റിയാസുദ്ദീൻ എന്നിവരെ കണ്ടെത്തുന്നതിനായി പൊലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു

പടക്കം വനത്തിനകത്ത് വെച്ച അബ്ദുൽ കരീം മകൻ റിയാസുദ്ദീൻ എന്നിവർ ഒളിവിലാണ് ഇവർക്കായി ഴനംവകുപ്പും പൊലീസും അന്വേഷണം ഊർജിതമാക്കി

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്